കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം കന്നുകാലി സ്റ്റ്വങ്ങ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ കാമധേനു ആൽ ്യോഗിനും അനുമതി

നിർമിക്ക്റിന്ന പദ്ധതിക്ക് തുടക്കമായി

ടി

നാലു താരങ്ങൾ പ്രീക്വാർട്ടറിൽ കടന്നു

നിയമവിരുദ്ധ നിക്ഷേപ പദ്ധതികളും മറ്റും തടഞ്ഞ് സാധാരണക്കാരെ തട്ടിപ്പൂകളിൽ നിന്നും രക്ഷിക്കാനാണ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനധികൃതമായി സാമ്പത്തിക നിക്ഷേപ ഇടപാടുകൾ ര്ടർക്കുന്നവർക്ക് കനത്ത പിഴ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഭേദഗതി ബി നിക്ഷേപകർക്ക് തിരിച്ചുനൽകുന്നതിനുള്ള പണം വ്യവസ്ഥകൾ നടത്തിയാൽ ഉൾക്കൊള്ളുന്നതാണ് ബിൽ

സമയബന്ധിതമായി കണ്ടുകെട്ടൽ നിട്ടെക്കാനും നിക്ഷേപങ്ങൾ മടക്കി നൽകാനും വ്യവസ്ഥയുണ്ട് രാജ്യത്തിൽ നിക്ഷേപ സമാഹരണ പദ്ധതികൾ നിരീക്ഷിക്കാൻ ഓൺലൈൻ ഈനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു

ഹരിയാനയിലെ കുന്ദ്ലിയിലെയും തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെയും ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പദവി ഉയർത്തുന്നതിനാണ് ബിൽ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച രാഷ്ട്രീയ കാമധേനു ആയോഗിനും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി രാജ്യത്തെ കന്നുകാലി സമ്പത്ത് സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ഇൻകംടാക്സ് ഓംബുഡ്സ്മാൻ ഇൻഡയറക്ട് ടാക്സ് ഓംബുഡ്മാൻ എന്നിവയെ പിൻവലിക്കാനുള്ള തീരുമാനവും അംഗീകരിച്ചു

സി യിൽ നിന്നും തെലങ്കാനയ്ക്കും ജാർഖണ്ഡിനും കൂടുതൽ ഊർജവിഹിതവും മന്ത്രിസഭ അനുവദിച്ചു

അധ്യക്ഷനും ആർ ബി

ആർ ഡി എ ഐ പി എഫ് ആർ ഡി

ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഉണ്ടാക്കുന്റ്റ്വർക്കിട് മുന്ന് വർഷം വരെ തടവും പത്തു ലക്ഷം രൂപ പിഴയും ശുപാർശ ചെയ്യുന്നു നിയമഭേദഗതി വഴി വ്യാജ ചലച്ചിത്ര നിർമ്മാണവും അനധികൃത ഓൺലൈൻ പ്രദർശനവും ഒഴിവാക്കാൻ കഴിയുമെന്നും വ്യവസായത്തെ സമ്പന്നമാക്കാനും ചലച്ചിത്ര കുടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു

കോടതിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന് മുന്നിൽ ഹാജരാകാനും അന്വേഷണത്തിൽ സഹകരിക്കാനും നിർദ്ദേശം നൽകിയത് കോടതി ഉത്തരവ് അനുസരിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഭാര്യയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയ്ക്കൊപ്പമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന്റെ വാദ്ര ഓഫീസിലെത്തിയത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

റിസർവ് ബാങ്ക് ഗവർണറായി ശക്തികാന്ത ദാസ് ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ നയ പ്രഖ്യാപനമാണിത്

വായ്പാ നിരക്കുകൾ മുന്നാം തവണയും മാറ്റമില്ലാതെ രൻാണ് സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നു

കന്യാസ്ത്രീകളെ സ്ഥലംമാറ്റാനുള്ള തീരുമാനം കേസ് അട്ടിമറിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും കത്തിൽ പരാമർശമുണ്ട് വിദൂരസ്ഥലങ്ങളിലേയ്ക്കുള്ള സ്ഥലംമാറ്റം തങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി സാക്ഷികളായ കന്യാസ്ത്രീകൾ ദേശീയ വനിതാകമ്മീഷന് കത്ത് നൽകിയിരുന്നു

ലാപ്ടോപ്പ് സർവർ ഉത്പാദന രംഗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യ പൊതു സ്വകാര്യ സംരംഭമാണ് കൊക്കോണി കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

എസ് ടി ഗ്ലോബലുമായി ക്കെക്കോർത്തു കൊണ്ടാണ് കേരളത്തിൽ ഗുണമേന്മയുള്ള ലാപ്ടോപ്പുകളും നിർവറുകളും ഉത്പാദിപ്പിക്കുന്ന സംരംഭത്തിനു തുടക്കം കുറിക്കുത്

പ്രവർത്തന ചടുലതയാർന്ന ഒരു ഇലക്ട്രോണിക് ഹാർഡ്വെയർ ഉത്പാദന ഇക്കോസിസ്റ്റം കേരളത്തിൽ വളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യമാണ് കൊക്കോണിക്സ് മുന്നോട്ടുവയ് ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാഹുൽ ദ്രാവിഡ് പരിശീലിപ്പിക്കുന്ന ഇന്ത്യ തിരുവനന്തപുരത്ത് നടന്ന ഏകദിനപരമ്പര ന് എ

ലോകബാങ്ക് തലവനായിരുന്ന ജിം യോങ്ങ് കിം രാജിവച്ച ഒഴിവിലാണ് നിയമനം

ചർച്ചയിലും തുടർന്ന് നടക്കുന്ന വോട്ടെടുപ്പിലും പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗെ സ്വന്തം പാർട്ടിയിലെ എം

അടുത്ത ആഴ്ചയോടെ ഇക്കാരൃം പ്രഖ്യാപിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി

പാരദീപ് തുറമുഖം രാജ്യത്തെ പ്രമുഖ തുറമുഖമായി വളരുമെന്ന് അദ്ദേഹം പറഞ്ഞു

പരസ്പരം സഹകരിക്കാവുന്ന വിവിധ മേഖലകളെക്കുറിച്ചുക യോഗത്തിൽ ഇരുപക്ഷവും ചർച്ച നടത്തി

മണിക്കൂർ നേരത്തേക്കും മഴയും മഞ്ഞുവീഴ്ചയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് വ്യക്തമല്ലാത്തിനാൽ ശ്രീനഗർ ത്മപാത വിമാനത്താവളത്ത കും തിരിച്ചുമുള്ള വിമാനങ്ങൾ റദ്ദാക്കി

ഉത്തർപ്രദേശിലെ കുംഭമേളയുടെ ഭാഗമായി ഞായറാഴ്ച ബസന്തപഞ്ചമി സ്നാനം നടക്കും

ഇതിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഉന്നതതല യോഗം ചേർന്നു

സംസ്ഥാന ആനിമൽ വെൽഫെയർ ബോർഡ് അംഗം എം എൻ ജയചന്ദ്രന്റെ പരാതിയുടെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് നടപടി